സൂര്യാതപമേറ്റ് ഇന്നലെ മൂന്ന് മര ണം

കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ട് തിരുവനന്തപുരം പത്തനംതി ട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്ട് കൂടാൻ സാധ്യതയു ണ്ടെന്നാണ് മുന്നറിയിപ്പ് സൂര്യാതപമേറ്റതായി സംശയിക്കുന്ന മൂന്ന് പേർ ഇന്നലെ മരിച്ച തായാണ് റിപ്പോർട്ട് തിരുവനന്തപുരം പത്തനംതിട്ട കണ്ണൂർ ജില്ല കളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ വെന്ന് ആരോഗ്യ വകൂപ്പ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയി ച്ചു

സംസ്ഥാനത്തിന്റെ പല പ്രദേശത്തും സൂര്യാതപവും സൂര്യാഘാ തവും മൂലം ആളുകൾക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യം കണ ക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടു വിച്ചു നിർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ചെറിയ കുപ്പിയിൽ കരുതണമെന്നും രോഗികൾ മൂന്ന് മണിവരെ സൂര്യപ്ര കാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദേശിച്ചിട്ടുണ്ട് കാപ്പിയും ചായയും പകൽ സമയത്ത് ഒഴിവാക്കി ശുദ്ധജലം കുടി ക്കണം

ജീവനക്കാരുടെ ഷിഫ്റ്റ് സമയം ഇതിനനുസരിച്ച് പുനക്രമീക രിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ആലപ്പുഴയിൽ ഇന്നലെ മൂന്ന് പേർക്ക് സൂര്യാതപമേറ്റു മത്സ്യബ ന്ധന തൊഴിലാളിക്കും സ്വകാര്യ ടിവി ചാനൽ ക്യാമറാമാനും ഒരു കാൽനട യാത്രക്കാരനുമാണ് പൊള്ളലേറ്റത്

ഉഷ്ണതരംഗം സൂര്യാഘാതം സൂര്യാതപം എന്നിവയെ സംസ്ഥാ നത്തെ സുവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഡോക്ടർമാരും അഭിഭാഷകരും എഞ്ചിനിയർമാരും അധ്യാപക രും ഐടി പ്രൊഫഷണലുകളും താനും ചൌക്കീദാറാണെന്ന പരി പാടിയിൽ പങ്കു ചേരണമെന്ന് മറ്റൊരു ട്വീറ്റിൽ പ്രധാനമന്ത്രി പറ ഞ്ഞു ഇവരുടെ ശ്രമം രാജ്യത്തെ ആരോഗ്യകരവും സമ്പദ് സമൃ ദ്ധവും വിദ്യാസമ്പന്നവുമാക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെ ട്ടു

കർഷകരെ അപമാനിക്കുന്നവർക്ക് യഥാർത്ഥ രാജ്യസ്നേഹികൾ ആകാനാവി ല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞു പ്രധാനമന്ത്രി യുടെ പരാജയത്തിന് അദ്ദേഹം എന്തിനാണ് കർഷകരെ ദ്രോഹി ക്കുന്നതെന്ന് രാഹുൽഗാന്ധി ചോദിച്ചു നമുക്ക് ജീവിതം നൽകു ന്നത് നമ്മുടെ കർഷകരാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറ ഞ്ഞു

ബിഹാർ തമിഴ്നാട് ജമ്മു കശ്മീർ കർണാ ടക സംസ്ഥാനങ്ങളിലാണ് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചത് രാഹുൽഗാന്ധി ്രമത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബംഗുളൂർ സൌത്തിൽ ബി കെ ഹരിപ്രസാദും തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ കാർത്തി ചിദംബരവും മത്സരിക്കും വടകരയിലെയും വയനാട്ടി ലെയും സ്ഥാനാർഥികളെ ഒമ്പതാം പട്ടികയിലും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല

പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബ ന്ധിച്ച് ഈ യോഗങ്ങളിൽ തീരുമാനമുണ്ടായേക്കും

മുസ്ലിം വർഗീയതയെ ശക്തിപ്പെടുത്തുന്ന മുന്നണി സ്ഥാനാർഥിയായി മത്സരിക്കുന്നത് ആർ എസ് എസിന്റെ വർഗീയ നീക്കത്തിന് കരുത്തു പകരുമെന്നും അദ്ദേഹം വടകരയിൽ പറഞ്ഞു

ആന്ധ്ര പ്രദേശ് ഒഡീഷ സിക്കിം സംസ്ഥാന നിയമസഭകളിലേക്കും ആദ്യ ഘട്ടത്തിൽ ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ സംബന്ധിച്ച് പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ സംവിധാനം സി വിജിൽ മൊബൈൽ ആപ്തിക്കേഷനും വെബ്സൈറ്റും ഉപയോഗ പ്പെടുത്തുന്നവരുടെ എണ്ണം വർധിക്കുന്നു

അഞ്ച് മിനുട്ട് ദൈർഘ്യം വരുന്ന വീഡിയോകളും ഫോട്ടോകളും പരാതിക്കൊപ്പം നൽകുകയും ചെയ്യാം പൊതുസ്ഥ ലങ്ങളിൽ ബാനറുകളും ബോർഡുകളും മറ്റു പ്രചാരണ സാമഗ്രി കളും സ്ഥാപിച്ചതും പണവും മദ്യവും നൽകി വോട്ടർമാരെ സ്ഥാധീ നിക്കുന്നതും പൊതുജനങ്ങൾക്ക് സി വിജിൽ വഴി തെളിവ് സഹിതം പരാതിയായി ബോധിപ്പിക്കാൻ കഴിയും

പെരിന്തൽമണ്ണയിൽ നിന്നും തിരൂരങ്ങാടിയിൽ നിന്നുമാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർ ്പട്ടികയിൽ ഇന്ന് കൂടി പേര് ചേർക്കാം

നാമനിർദേശ പത്രിക പിൻവലിക്കുന്ന അടുത്തമാസം എട്ട് വരെ പേര് ചേർക്കാ മെങ്കിലും ഇന്ന് കൂടി അപേക്ഷിക്കുന്നവരുടെ പേര് മാത്രമേ വോട്ടർപട്ടികയിൽ ഉറപ്പു വരുത്താനാകൂവെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസ് തിരുവനന്തപുരത്ത് അറിയിച്ചു ജയ്ഷെ മുഹമ്മദ് ഭീകരർ പുൽവാമയിൽ ആക്രമണം നടത്തിയി ല്ലെങ്കിലും ബലാകോട്ടിൽ വ്യോമസേന വ്യോമാക്രമണം നടത്തു മായിരുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി പറഞ്ഞു

മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആറ് വിക്കറ്റിന് സൺറൈസസ് ഹൈദരാബാദിനെ തോൽപിച്ചു ഇന്ന് രാജസ്ഥാൻ റോയൽസും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റു മുട്ടും മലേഷ്യയിലെ ഇപ്പോയിൽ അസ്ലൻഷാ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യക്ക് സമനില

ഇന്ത്യ നാളെ മലേഷ്യയെ നേരിടും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇതുവരെ നൽകാത്ത സ്ഥാപന മേധാവികൾ ഇന്ന് വൈകിട്ട് മൂന്നു മണിക്കു മുമ്പായി പ്രസ്തുത വിവരങ്ങൾ നിശ്ചിത ഫോർമാറ്റിൽ കലക്ടറേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ നൽകണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കണ്ണൂർ ജില്ലാ കലക്ടർ മിർ മുഹമ്മദലി അറിയിച്ചു

പരിശോധനാ നടപ ടികൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട് വയൽകിളികൾ എന്ന സംഘടനയുടെ നേതാവ് സുരേഷ് കീഴാറ്റൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിൻമാറി തളിപറമ്പ് കീഴാറ്റൂരിൽ ദേശീയപാതാ ബൈപ്പാസ് നിർമാ ണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡല ത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചിരു ന്നു ഇന്ത്യ അതിനിർണായകമായ ഒരു പൊതുതെരഞ്ഞെടുപ്പിന് അഭി മുഖീകരിക്കുകയാണെന്നും ഒരു കാരണവശാലും മതേതര വോട്ടു കൾ ഭിന്നിക്കാൻ ഇടവരരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ട് ദമ്പതികളെ കാണാതായി കൊട്ടിയം പറക്കുളം കല്ലുവിളവീട്ടിൽ സുനിൽ ശാന്തിനി എന്നിവരാണ് തിരയിൽപെട്ടത്

കാസർകോട് വീട്ടിൽ സൂക്ഷിച്ച നാല് കിലോ കഞ്ചാവ് പൊലീസ് പിടികൂടി സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു

പൂപ്പാറ സ്വദേശികളായ കുന്നത്ത് ഉല്ലാസ് ഡ്രാബൽ കോളനി നി വാസി രാജേഷ് എന്നിവരാണ് പിടിയിലായത്